ത കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

സംസ്കാരം ഉച്ചയ്ക്ക് കരിപ്പുഴ സെന്റ് ജോർജ്ജ് ഓർത്തഡോക്സ് പള്ളിയിൽ

വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ തീവ്ര കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവ്വകക്ഷി യോഗം വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും നാലരയ്ക്ക് ഓൺലൈനിൽ ചേരുന്ന യോഗം സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്യും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് വ്യാപനം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സർവ്വകക്ഷി യോഗം വിളിച്ചത് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം രോഗ നിയന്ത്രണത്തിന് കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു പൂർണ്ണമായ അടച്ചിടൽ പരിഹാരമല്ലെങ്കിലും കർശന നടപടികൾ ആവശ്യമാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടിരുന്നു രുമ തുടർച്ചയായ രണ്ടാം ദിവസവും കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തി

കോവിഡ് പരിശോധന സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ കണക്കാക്കിയതിനാൽ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം മുഴുവനായി ഉൾപ്പെടുത്താനായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

ദരദ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഗവണ്മെന്റ് സർവീസിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നിലവിൽ ആരോഗ്യ തദ്ദേശ ഭരണ റവന്യൂ ഉദ്യോഗസ്ഥരെയും വളണ്ടിയർമാരെയുമാണ് ഇതിന് നിയോഗിച്ചിരിക്കുന്നത് ഇത് പലർക്കും രോഗവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി കോർപ്പേറേഷൻ മേഖലകളിൽ കോവിഡ് നിയന്ത്രണ ചുമതലകൾ ഗസറ്റഡ് ഓഫീസർമാരെ ഏൽപിക്കാനാണ് തീരുമാനം ഇതിനായി അവർക്ക് താൽക്കാലികമായി പ്രത്യേക അധികാരം നൽകും പൊതു സ്ഥലങ്ങളിൽ ഇപ്പോഴും മാസ്ക് ധരിക്കാതെ നിരവധി പേർ എത്തുന്നുണ്ടെന്നും ഇത് തടയാൻ ഇപ്പോഴത്തെ പിഴ തുക കൂട്ടേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സാമൂഹ്യ അകലം പാലിക്കാതെ കടകളിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഉടമകൾക്കെതിരെ കർശന നടപടി എടുക്കും ഇത്തരം കടകൾ അടച്ചിടേണ്ടിവരും കൂടുതൽ ആളുകൾ കടയിലെത്തിയാൽ നിശ്ചിത ആളുകളെ മാത്രം കടയിൽ പ്രവേശിപ്പിച്ച് മറ്റുള്ളവരെ ക്യൂ നിർത്തണമെന്നും ഇതിന് പ്രത്യേകം സ്ഥലം അടയാളപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

ഇത് ലംഘിച്ചാൽ നടപടി നേരിടേണ്ടിവരും രേര കോവിഡ് മാറിയവർക്ക് മറ്റുചില രോഗങ്ങൾ വരാനിടയുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഐസിയു വെന്റിലേറ്റർ ഓക്സിജൻ സിലിണ്ടർ എന്നിവയടക്കം സൌകര്യങ്ങൾ ഗവൺമെന്റ് പരമാവധി ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുദ ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് നിയന്ത്രിതമായ തോതിൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഓരോ ദിവസവും വെർച്വൽ ക്യൂ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത നിശ്ചിത എണ്ണം തീർത്ഥാടകരെ ദർശനത്തിന് അനുവദിക്കാനാണ് തീരുമാനം ഓരോരുത്തർക്കും കൃത്യമായ സമയക്രമം നിശ്ചയിച്ച് നൽകും ദർശനം നടത്തി ഉടൻ തന്നെ മലയിറങ്ങുന്ന തരത്തിൽ തീർത്ഥാടനം ക്രമീകരിക്കും പമ്പയിലോ സന്നിധാനത്തോ വിരിവെക്കാനോ തങ്ങാനോ ഭക്തരെ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലയ്ക്കലിൽ പരിമിതമായ തോതിൽ വിരിവെക്കാൻ സൌകര്യം നൽകും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാം എന്ന കാര്യത്തിൽ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും പൊലീസ് മേധാവിയും ഉൾപ്പെടുന്ന സമിതി തീരുമാനമെടുക്കും കോവിഡ് രോഗബാധിതർ തീർത്ഥാടനത്തിന് എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വിവിധ കേന്ദ്രങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ ആന്റിജൻ ടെസ്റ്റ് നടത്തും കുടിവെളള വിതരണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ചുരുങ്ങിയ തോതിൽ മാത്രമായിരിക്കും അന്നദാനം സാമൂഹിക അകലം പാലിച്ച് തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ കെ എസ് ആർ ടി

തീർത്ഥാടകർ മല ഇറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കോവിഡ് സാഹചര്യം പരിഗണിച്ച് പമ്പ എരുമേലി എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് കുളിക്കാൻ ഷവർ സംവിധാനം ഏർപ്പെടുത്തും

ഇതുവരെ രണ്ടര കോടിയോളം ആളുകൾ രോഗമുക്തരായി

മരണസംഖ്യ ഒരു ലക്ഷത്തോടടുക്കുന്നു ദേദ ഗർഭിണിയ്ക്ക് ചികിത്സ ലഭിക്കാതെ ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോടും സൂപ്രണ്ടിനോടും വിശദീകരണം തേടാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ

ചികിത്സ ലഭ്യമാക്കുന്നതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു

ജില്ലാ മെഡിക്കൽ ഓഫീസറും പൊലീസ് മേധാവിയും രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു നവമാധ്യമ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ ഹീനമായ ആക്രമണങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ ഗൌരവത്തോടെയാണ് ഗവണ്മെന്റ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന യുട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവങ്ങളിൽ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവാദ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് യുട്യൂബ് അധികൃതരോട് ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി അറിയിച്ചു

കേരളത്തിലെ മനഃശാസ്ത്ര ചികിത്സാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോ

എം മാത്യു വെല്ലൂർ ഏറ്റവും ജനകീയ സൈക്കോളജി സ്റ്റായിരുന്നു മാനസിക ആരോഗ്യത്തെ കുറിച്ച് സാധാരണക്കാരിൽ അവബോധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര പംക്തികൾ ഏറെ പ്രയോജനപ്പെട്ടു മനഃശാസ്ത്ര അധ്യാപകൻ ദീർഘകാലം ഗവേഷകൻ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു സംസ്കാരം ഉച്ചക്ക് മാവേലിക്കര കരിപ്പുഴ സെന്റ് ജോർജ്ജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോ

സാധാരണക്കാരിൽ മാനസികാരോഗ്യത്തെ കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

ഹൃദയത്തെക്കുറിച്ച് അറിയാനും അതിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനാണ് രാജ്യാന്തര തലത്തിൽ വേൾഡ് ഹാർട്ട് ഫൌണ്ടേഷൻ ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ത്തുടർന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പുകവലി മദ്യപാനം ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലം ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയടക്കം നിരവധി ഘടകങ്ങൾ ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്

ദുബായിൽ ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെ സൂപ്പർ ഓവറിലാണ് ചലഞ്ചേഴ്സ് തോൽപ്പിച്ചത് ഇന്ന് വൈകിട്ട് ഡൽഹി കാപ്പിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദ്രബാദിനെ അബുദാബിയിൽ നേരിടും ദേദ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ചടയമംഗലം സബ്ബ് റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായിരിക്കും രുമ കാസർകോഡ് മുതൽ മലപ്പുറം വരെ അഞ്ച് ജില്ലകളിലെ നഗരസഭാ സംവരണ വാർഡുകൾ നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് ഇന്ന് നടക്കും കോഴിക്കോട് മാനാഞ്ചിറ ടൌൺഹാളിലാണ് നറുക്കെടുപ്പ് കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷനുകളിലെ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി

രേര കോഴിക്കോട് ജില്ലയിലെ പരിസ്ഥിതി ലോലമേഖലാ നിർണയം എത്ര കുടുംബങ്ങളെയും വീടുകളെയും ബാധിക്കുമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി ടി

രുമ ഇടുക്കി ഡാം ഇപ്പോൾ തുറക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി എം

രുമ മുൻഗണനാ വിഭാഗക്കാർക്ക് റേഷൻ കടകൾ വഴി സൌജന്യ കിറ്റ് വിതരണം ഇന്നാരംഭിക്കും

പൂജ്യത്തിൽ അവസാനിക്കുന്ന കാർഡ് ഉടമകൾക്ക് ഇന്നും ഒന്നിൽ അവസാനിക്കുന്നവർക്ക് നാളെയും കിറ്റ് വിതരണം ചെയ്യും